രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം ഒമ്പത് ലക്ഷത്തിലേക്ക്

തിരുവനന്തപുരം ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ അവകാശമുണ്ടെന്ന രാജകുടുംബത്തിന്റെ വാദം അംഗീകരിച്ച് സുപ്രീം കോടതി

കർണാടക നിലവിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണത്തിൽ ഡൽഹിയെ മറികടന്നു

ബിഹാറിലെ സീതാമർഹി ജില്ലയിലും മറ്റ് മൂന്ന് ജില്ലയിലും സമ്പൂർണ ലോക്ഡൌൺ പ്രഖ്യാപിച്ചു ഉത്തർപ്രദേശിൽ അടുത്ത അധ്യയന വർഷം ആരംഭിക്കാൻ സർക്കാർ സർവകലാശാലകൾക്ക് പ്രത്യേക മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു ബിരുദ ക്സാസുകൾ ഒക്ടോബർ ഒന്നിനും ബിരുദാനന്തര ക്ലാസുകൾ നവംബർ ഒന്നിനും ആരംഭിക്കാനാണ് പദ്ധതി ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഭീകരവാദത്തിനെതിരെ മാത്രമല്ല കോവിഡ് എന്ന മഹാമാരിക്കെതിരെയും ജനപിന്തുണയോടെ പോരാടാൻ കഴിയുമെന്ന് അവർ തെളിയിച്ചിരിക്കുന്നതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഹരിയാനയിലെ ഗുരുഗ്രാമിൽ സി

കോവിഡിനെതിരെയുള്ള ഇന്ത്യയുടെ വിജയകരമായ പോരാട്ടം ലോകം ആവേശത്തോടെയാണ് കാണുന്നതെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞു

മാരുടെയും രണ്ട് സി

ഐ

എല്ലാ പാർട്ടി എം എൽ എ

മാർ തനിക്ക് പിന്തുണ നൽകിയെന്നും അവകാശപ്പെട്ട് ഇന്നലെയാണ് സച്ചിൻ പൈലറ്റ് രംഗത്തെത്തിയത് ഇന്ന് നടക്കാന്റിരിക്കുന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിൽ പൂർക്കെട്ടുക്കില്ലെന്നും സച്ചിൻ പൈലറ്റ് അറിയിച്ചിരുന്നു

അതേസമയം ഉത്തർപ്രദേശിൽ മൂന്ന് ദിവസം ഏർപ്പെടുത്തിയിരുന്ന സമ്പൂർണ ലോക്ഡൌൺ ഇന്ന് രാവിലെ അവസാനിച്ചു

അനന്ത്നാഗ് ജില്ലയിലെ ശ്രീഗുഫ്വാര പ്രദേശത്തുണ്ടായ ഏറ്റുമുട്ടലിലാണ് സുരക്ഷാ സേന ഭീകരനെ വധിച്ചത് ഇവിടെ ഭീകരർ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടിനെ തുടർന്നാണ് തെരച്ചിൽ നടത്തിയത്

ജസ്റ്റിസ് യു

വിധിയെ രാജകുടുംബം സ്വാഗതം ചെയ്തു വിധി നടപ്പാക്കുമെന്ന് ദേവസ്വം മന്ത്രി കടകംപളളി സുരേന്ദ്രൻ അറിയിച്ചു

കോട്ടയം പാറത്തോട് ഇടകുന്നം സ്വദേശി അബ്ദുൾ സലാം ആണ് മരിച്ചത്

കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു

കോട്ടയം ജില്ലയിലെ ആദ്യ കോവിഡ് മരണമാണ് അബ്ദുൽ സലാമിന്റേത്

അവർ നിരീക്ഷണത്തിലാണ്

ആവശ്യക്കാർക്ക് മാറി താമസിക്കാൻ റിവേഴ്സ് ക്വാറന്റൈൻ സ്ഥാപനങ്ങൾ സജീകരിക്കും

നിജപ്പെടുത്താനായി രാജ്യത്തെ ബാങ്കുകളെയും പോസ്റ്റ് ഓഫീസുകളെയും സഹായിക്കാൻ പുതിയ സംവിധാനവുമായി ആദായ നികുതി വകുപ്പ്

ഡി എസ്

കോവിഡ് പശ്ചാത്തലത്തിൽ നിലവിലുള്ള ലോക്ഡൌൺ ക്രമേണ പിൻവലിക്കുന്നതനുസരിച്ച് മത്സരങ്ങളും മറ്റു കായിക പ്രവർത്തനങ്ങളും ആരംഭിക്കുന്ന കാര്യം യോഗത്തിൽ ചർച്ച ചെയ്യും

കോവിഡ് ബാധയെ തുടർന്ന് നടത്തുന്ന ആദ്യ അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരമാണിത്

സ്വർണ് വിലയിൽ മാറ്റമില്ല

തെക്ക് പടിഞ്ഞാറൻ കാലവർഷം ഈ മേഖലയിലേക്ക് പ്രവേശിച്ചതിനാലാണിത് വടക്ക് കിഴക്കൻ മേഖലയിലും ബിഹാർ പശ്ചിമ ബംഗാൾ കിഴക്കൻ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലും ശക്തമായ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്